പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ കർഷകരെ ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും

കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നട്ടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാർഷികമേഖലയിൽ പുതിയ അധ്യൂട്യത്തിന് തൂടക്കമിടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് ്തോമർ

പരിപാടിയിൽ ഇരുപതിനായിരത്തോളം കർഷകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ഈ നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുന്നതിനൊപ്പം കൂടുതൽ സ്വതന്ത്രരാക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്നതാണ് സർക്കാരിൻറെ ആപ്തവാക്യമെന്നും കർഷകർക്കെഴുതിയ കത്തിൽ ശ്രീ തൊമർ വ്യക്തമാക്കി രാജ്യത്തെ ചില കർഷകരിൽ പുതിയ കർഷകനിയമം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൃഷിമന്ത്രി എന്ന നിലയിൽ ഈ തെറ്റിദ്ധാരണകൾ നീക്കുകയാണ് തന്റെ കർത്തവ്യമെന്നും അദ്ദേഹം പറഞ്ഞു ചിലർ രാജ്യത്ത് താങ്ങുവില നിർത്തലാക്കുമെന്ന നുണപ്രചരണം നടത്തുകയാണ് ഇത്തരം വ്യാജവാർത്തകൾ കർഷകർ തിരിച്ചറിയണമെന്നും ശ്രീ തൊമർ അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടുള്ള തന്റെ പ്രതിബദ്ധതകളിൽ പ്രധാനമായി കരുതുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയാണ് ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള നടപടികളും തീരുമാനങ്ങളുമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും കേന്ദ്ര കൃഷിമന്ത്രി അഭിപ്രായപ്പെട്ടു

നെല്ല് സംഭരണം ധ്രുതഗതയിൽ നടക്കുന്നുണ്ടെന്നും കർഷകർ ഒരു പ്രതിസന്ധിയും നേരിടുന്നില്ലെന്നും പട്നയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ശ്രീ നിതീഷ് കുമാർ പറഞ്ഞു

കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനവും ബിഹാറിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും പ്രവർത്തനം ഊർജിതമാക്കുന്നതും ആലോചിക്കും പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിലും ദേശീയ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കും

ഒരു റിപ്പോർട്ട്

അഞ്ചു ജില്ലകളിൽ അയ്യായിരത്തിലേറെ കോവിഡ് രോഗികൾ ചികിത്സയിലൂർണ്ട് കാസർഗോഡ് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കുറവ് രോഗ്വികളുള്ളത്

ഇത് പ്രകാരം വിദ്യാർഥികളുടെയും അധ്യാപകരുടെയും ഹാജർനില പ്രത്യേക മൊബൈൽ ആപ്പിക്കേഷനിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പ്രാർത്ഥന അടക്കം കൂട്ടംചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്

രോഗബാധ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ പ്രതിദിനം രണ്ട് ലക്ഷത്തിലേറെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്

പ്രതിഭയുള്ളൂ കരകൌശലവിദഗ്ദ്ധർക്ക് പിന്തുണ നൽകാനുള്ള സർക്കാറിന്റെ ഫലപ്രദമായ ദൌത്യമായി ഹുനാർ ഹാത്ത് മാറിയെന്ന് ഇന്നലെ റാംപൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ന്യൂനപക്ഷകാരൃമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ആത്മനിർഭർ ഭാരതിനോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നതിനൊപ്പം രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും വൻതോതിൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ വേദിയായി ഹുനാർ ഹാത്ത് മാറി

എം

എസ് ആർ

ദൌതൃം വിജയകരമായി പൂർത്തിയാക്കിയ ശാസ്ത്രജ്ഞരേയും സാങ്കേതിക വിദഗ്ധരേയും ഐ എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ അഭിനന്ദിച്ചു

ഇന്ന് പത്തനംതിട്ട കോട്ടയം എറ്ണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് എന്നും ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലുമാണ് പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ സമിതി യോഗമാണ് ഇതിന് അനുമതി നൽകിയത്

ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ രണ്ടു വിക്കറ്റെടുത്തു

ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരു എഫ് സി ഒഡീഷയെ തോൽപിച്ചു